പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ലോകസഭയും രാജ്യസഭയും ഇനി അടുത്തമാസം രണ്ടിനു ചേരും

കേരളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ആശംസ നേർന്നു

ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഭേദഗതിബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും ബിൽ പാസ്റ്റാക്കാൻ അനുവദിക്കണമെന്നും പാർലമെന്ററി കാര്യ മന്ത്രി വിജയ് ഗോയൽ ആവശ്യപ്പെട്ടു പരസ്പരം ആരോപണം ഉന്നയിച്ച് ബഹളം വച്ചതിനെ തുടർന്ന് സഭ ഇന്നത്തേയ്ക്ക് പിരിയുന്നതായി ഉപാധ്യക്ഷൻ ഹരിവംശ് അറിയിച്ചു രാജ്യസഭ ഇനി ബുധനാഴ്ച ചേരും

നേരത്തെ വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെന്നിന്റെ നിര്യാണത്തിൽ സഭ അനുശോചനം രേഖപ്പെടുത്തി

റഫാൽ വിഷയം സംയുക്ത പാർലമെന്റി സമിതി അന്വേഷണിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട് കോൺഗ്ഗസ് അംഗം മല്ലികാർജ്ജുൻ ഖാർഗയാണ് വിഷയം സഭയിൽ ഉന്നിയിച്ചത്

ഇക്കാര്യത്തിൽ സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി സിഖു വിരുദ്ധ കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട രണ്ട് മുൻ എം

എ മാരും ഡൽഹി കോടതിയിൽ കീഴടങ്ങി

ഇതിനെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ബി

പി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മുൻകാല ബിജെപി ഗവമെന്റുകൾ എടുത്ത കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഗവണ്മെന്റുകൾക്ക് തന്റെ പാർട്ടി പുറമെ നിന്നു നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്ന് ശ്രീമതി മായാവതി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു

എസ്

ഗജ ചുഴലിക്കാറ്റ് വ്യാപക ദുരിതം വിതച്ച തമിഴ്നാടിന് ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നുമാണ് തുക നല്കുന്നത്

കർഷകരുടെ താല്പരൃത്തിന് പ്രഥമ പരിഗണന നല്കുന്നതാണ് ഗവണ്മെന്റിന്റെ കാർഷിക നയമെന്നും മന്ത്രാലയം വൃക്തമാക്കി

കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാരൃമന്ത്രി ഹർദീപ് പുരി ന്യൂഡൽഹിയിൽ അറിയിച്ചതാണിത്

എസ് ഐ

ജഷറാബാദിലാണ് ഇന്നലെ ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദൃം ചെയ്തത് തീവ്രവാദികളായ മുഫ്തി മുഹമ്മദ് സുഹൈൽ ഉൾപ്പെടെ പത്ത് പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരാക്രമണത്തിനും പ്രധാന രാഷ്ട്രീയ നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനും പദ്ധതിയിടുന്നതിനിടെയായിരുന്നു അറസ്റ്റ്

ഐ എ പരിശോധന നടത്തിയിരുന്നു

വൈകുന്നേരം നാല് മണിക്കാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മതിൽ തീർക്കുന്നത്

ജലമെട്രോ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന ഉന്നതതലയോഗം പദ്ധതിക്ക് അംഗീകാരം നൽകി

എയുമായ സൈമൺ ബ്രിട്ടോ അന്തരിച്ചു

ഹൃദയസ്തംഭനത്തെ തുടർന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

കൊടുങ്കാറ്റ് കനത്ത മഴയ്ക്കും മണ്ണിടിച്ചിലിനും കാരണമായി

മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു

വൈദ്യുതി തടസ്സം നേരിട്ടതിനാൽ ചില പ്രദേശങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലായി

കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

അത്ത്സമയം പ്രളയാനന്തരം ശബരിമലയിൽ യുവതീ പ്രവേശനം ്അനുവദിച്ച സുപ്രീംകോടതി വിധിയെ തുടർന്നുള്ള സാഹചര്യവും ശ്രദ്ധേയമാണ് ഈ വർഷം ആദ്യം പടർന്നു പിടിച്ച നിപ്പ വൈറസും കേരളത്തിൽ പല ജില്ലകളിലും ആശങ്ക സൃഷ്ടിച്ചിരുന്നുവെങ്കിലും നിപ്പ ബാധയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ നാം മറ്റ് പല നാടുകൾക്കും മാതൃക സൃഷ്ടിച്ച് വിജയം കൈവരിച്ചു

കേരളത്തിന്റെ പുനർ നിർമ്മാണമാണ് സംസ്ഥാനം വരും വർഷം അഭിമുഖീകരിക്കുന്ന മുഖ്യമായ പ്രശ്നം വെല്ലുവിളി നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കേരളം പ്രതിജ്ഞ എടുത്ത് പുതുവർഷത്തിന് ശുഭ സൂചകമാണ് സംസ്ഥാനത്തെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നവവത്സരാഘോഷ പരിപാടികൾ സജീവമായിരിക്കും സംസ്ഥാനത്തെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള കേരളീയർക്കും ഗവർണർ

കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള ആശയങ്ങളിലെയും പ്രവൃത്തിയിലെയും ഒരുമയെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ ഈ പുതുവർഷമെന്ന് ഗവർണർ ആശംസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ കേരളീയർക്കും പുതുവത്സരാശംസകൾ നേർന്നു

സംശയങ്ങളോ പരാതികളോ കളക്ടറേറ്റുകളിൽ ഉള്ളവർ പ്രവർത്തിക്കുന്ന ജില്ലാതല വോട്ടർ സഹായ ഡെസ്കുകളിൽ ബന്ധപ്പെടണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

സി

അടിസ്ഥാനത്തിലാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ഈ വർഷം അവസാനിക്കുമ്പോൾ ടെസ്റ്റ് ഏകദിന റാങ്കിംഗിൽ ഇന്ത്യൻ നായകൻ വിരാട്കോഹ്ലി ഒന്നാം സ്ഥാനം നിലനിർത്തി

ഹൈക്കോടതിയായാണ് തെലങ്കാന ഹൈക്കോടതി നാളെ നിലവിൽ വരുന്നത്

തെരഞ്ഞെടുപ്പിൽ ഉജ്ജൂല വിജയം നേടിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു